ങ്ങ ൽ ൾ ൾ ൽ ൾ സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രവാസി നിക്ഷേപം പ്രയോജനപ്പെടുത്തി പുതിയ കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോക കേരള സഭ യുടെ ഭാഗമായി രൂപീകരിച്ച പ്രത്യേക സമിതി കൂട്ടായ്മയ്ക്ക് അന്തിമ രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന പങ്കുവഹി ക്കുന്ന പ്രവാസികളെ കേന്ദ്രം തഴയുകയാണെന്ന് പിണറായി വിജ യൻ കുറ്റപ്പെടുത്തി മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സഹായക മായ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല അവ ധിക്കാലത്ത് വിമാനനിരക്ക് കുത്തനെകൂട്ടി പ്രവാസികളെ ചൂഷണം ചെയ്യാൻ എയർഇന്ത്യ തന്നെയാണ് മുൻപന്തിയിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രവാസി ക്ഷേമത്തിന് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും പ്രവാസിക ളുടെ ഫണ്ടും ഉപയോഗപ്പെടുത്തി സംസ്ഥാനം തയാറാക്കിയ പദ്ധ തിക്ക് കേന്ദ്രം അംഗീകാരം നൽകിയില്ലെന്നും മുഖ്യമന്ത്രി അറിയി ച്ചു എംബസികളിൽ മലയാളമടക്കം വിവിധ ഭാഷകളറിയുന്നവരെ നിയമിക്കാൻ കേന്ദ്രം ശ്രദ്ധിക്കണമെന്ന് പിണറായി വിജയൻ നിർദേ ശിച്ചു പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് പി ടി കുഞ്ഞുമു ഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ശബരിമലയിലെ ആചാര വിശ്വാസ സംരക്ഷണം ആവശ്യപ്പെട്ട് ശബരിമല കർമസമിതി ഇന്ന് വൈകീട്ട് തിരുവനന്തപുരത്ത് സംഘ ടിപ്പിക്കുന്ന അയ്യപ്പഭക്ത സംഗമം മാതാ അമൃതാനന്ദമയി ഉദ്ഘാ ടനം ചെയ്യും പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സംഗമത്തിൽ പ്രമുഖ ആധ്യാത്മിക നേതാക്കൾ പങ്കെടുക്കും കുളത്തൂർ അദ്വൈ താശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അധൃക്ഷനായിരിക്കും അഞ്ച് തെക്കൻ ജില്ലകളിലെ രണ്ട് ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംഗമ ത്തിന്റെ ഭാഗമായി നാമജപ ഘോഷ യാത്രകൾ സംഘടിപ്പിച്ചിട്ടു ണ്ട് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ മഠാധിപതികളും ആത്മീയ നേതാക്കളും സംഗമത്തിൽ പങ്കെടുക്കും ശബരിമല വിഷയത്തിൽ ബി ജെ

ശബരിമല ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കു ന്നതിൽ ബിജെപിയുടെ സമരം പൂർണ വിജയമാക്കാൻ സാധിച്ചിട്ടി ല്ലെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള തിരു വനന്തപുരത്ത് സമരപ്പന്തലിൽ പറഞ്ഞു മൂന്നുദിവസമായി ബിജെപി ദേശീയ സമിതിയംഗം പി കെ കൃഷ്ണദാസാണ് നിരാഹാരമനുഷ്ടി ക്കുന്നത് പൊതുസമൂഹത്തിന്റെ കൂടുതൽ പിന്തുണ ബിജെപി സമ രത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് ശ്രീധരൻപിള്ള് അവകാശപ്പെട്ടു

ജെ പി ഈ സമരം അവസാനിപ്പിക്കുകയല്ലെന്നും അടുത്ത ഘട്ട സമരം പാർട്ടി ചർച്ച ചെയ്തു തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

കെ കൃഷ്ണദാസ് ഇന്നു രാവിലെ പത്തിന് നിരാഹാര സമരം അവസാനിപ്പിക്കും മകരവിളക്ക് തീർഥാടനം പൂർത്തിയാക്കി ശബരിമലയിൽ അൽപ സമയത്തിനകം നട അടയ്ക്കും തീർഥാടകരുടെ ദർശനം ഇന്നലെ രാത്രി സമാപിച്ചിരുന്നു ഇപ്പോൾ പന്തളം രാജപ്രതിനിധിയുടെ അയ്യപ്പ ദർശനം നടക്കുകയാണ് ദർശനത്തിന് ശേഷം മേൽശാന്തി നടയ ടപ്പ് താക്കോൽ രാജപ്രതിനിധിയെ ഏൽപിക്കും ആചാര പ്രകാരം അടുത്ത ഒരു വർഷത്തേയ്ക്ക് പൂജാദി കാരൃങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് താക്കോലും പണക്കിഴിയും മേൽശാന്തിയെ മടക്കി ഏൽപിച്ച് തിരുവാഭരണവുമായി രാജപ്രതിനിധി പന്തളത്തേക്ക് മട ങ്ങും

തെരഞ്ഞെടുപ്പിന് മുന്നോടി യായി പാർട്ടിയുടെ ബൂത്ത് മണ്ഡല ജില്ലാ കമ്മിറ്റികൾ പുന സംഘടിപ്പിക്കാൻ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന കൌൺസിൽ തീരുമാനിച്ചു പാർട്ടി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു

ഗവൺമെന്റ് ഐ ടി ഐകളിലെ വിദ്യാർഥികൾക്ക് വിദേശത്ത് ഉന്നത പരിശീലനം നൽകുന്ന പദ്ധതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിപുലീകരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി ടി

ഐടിഐകളെ ദേശീയ അന്തർദേശീയ നില വാരത്തിലേക്കുയർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണ് ഇതു വഴി കൂടുതൽ പേർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു മലപ്പുറം ചെറിയമുണ്ടം ഗവൺമെന്റ് ഐടി ഐയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവല്ലയിൽ കീടനാശിനി തളിച്ച രണ്ട് തൊഴിലാളികൾ മരിച്ച തിനെ തുടർന്ന് സംസ്ഥാനത്തെ വളം കീടനാശിനി ഡിപ്പോകൾ പരിശോധിക്കാനും അനധികൃത വിൽപന തടയാനും മന്ത്രി വി എസ് സുനിൽകുമാർ നിർദേശം നൽകി കൃഷി ഓഫീസറുടെ കുറി പ്പില്ലാതെ കീടനാശിനി വിറ്റ ഇലഞ്ഞിമൂട്ടിൽ ഡിപ്പോ അധികൃതർ പൂട്ടിച്ചു പാടശേഖരത്ത് കീടനാശിനി തളിക്കുന്നതിനിടെ വിഷബാധയേറ്റ് പത്തനംതിട്ട വേങ്ങലിൽ രണ്ടു കർഷകത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മിഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാന ത്തിൽ കമ്മീഷനംഗം കെ

പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രിൻസിപ്പിൾ കൃഷി ഓഫീസർ ഡി

പി എന്നിവർ ഒരുമാസത്തിനകം റിപ്പോർട്ട് നൽകണമെ ന്നാണ് ഉത്തരവ് ഇടുക്കിയിൽ ഇപ്പോഴത്തെ പവർഹൌസിന് സമാന്തരമായി പുതിയ ഒരു പവർഹൌസ് കൂടി നിർമിക്കുന്ന കാര്യം പരിഗണിച്ചു വരിക യാണെന്ന് മന്ത്രി എം

കേരളത്തിലെ ആദ്യ അൺമാൻഡ് സബ് സ്റ്റേഷൻ നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി എടപ്പാൾ മേൽപ്പാലത്തിന്റെ നിർമ്മാണവും നവീകരണം പൂർത്തി യായ എടപ്പാൾ നീലിയാട് പാതയുടെ സമർപ്പണവും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷവും ന്യൂനപക്ഷ വും നോക്കിയല്ല ആവശ്യങ്ങൾ നോക്കിയാണ് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് തൃശൂർ റോഡിന് മുകളിലൂടെ പൂർണമായും ഗവൺമെന്റ് സ്ഥല ത്താണ് പാലം നിർമിക്കുന്നത്

ചടങ്ങിൽ മന്ത്രി ഡോ

പണ്ടത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇന്നത്തെപോലെ കാരുണൃ ലോട്ടറി വിറ്റ് നേതാക്കളായവരല്ലെന്ന് മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ

രാജ്യത്തെ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാൻ സയിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലെ വിശാല ചിന്താഗതി പുലർത്തുന്ന നേതാക്കളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നട്ടത്തുകയായിരുന്നു ശങ്കരനാ രായണൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളുടെ സ്പ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഉപകരണ ങ്ങളായി കൂട്ടികളെ കാണാൻ പാടില്ലെന്ന് സ്പീക്കർ പി

സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മി ഷനും മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും വനിതാ ശിശു വികസന്റവകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ഏകദിന ശിൽപ ശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ

കേരള നിയമാസഭയും സംസ്ഥാന സാക്ഷര്താ മിഷനും സംയു ക്തമായി സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സാക്ഷര്താ സന്ദേശ യാ ത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് നഗ രത്തിൽ യാത്രാ സ്വീകരണ സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൽഘാടനം ചെയ്തു

മുൻ ഗവർണമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ പിന്നീടു വരുന്ന ഗവൺമെന്റിന് ഭരണഘടനാപരമായ ഉത്തരവാദി ത്തമുണ്ടെന്ന് മന്ത്രി ജി

പാലക്കാട് മലപ്പു റം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആന്തൂരക്കടവ് പാലം ഗതാഗതത്തി ന് തുറന്നു കൊടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഷൊർ ണൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർ ത്തനങ്ങളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

സി സി വർക്കിങ് പ്രസി ഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു വിവിധ വകുപ്പുകളിൽ പട്ടികവിഭാഗ ക്ഷേമത്തിന് അനുവദിച്ച തുകയിലും വൻകുറവ് വരുത്തിയതായി കൊടിക്കുന്നിൽ കുറ്റപ്പെടുത്തി

വിവരാവകാശ നിയമങ്ങൾ ജനകീയമാക്കു ന്നതിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം

കോടതി വിധികൾ വായിച്ചു മനസിലാക്കാതെയാണ് ചാനലുകൾ അതെപറ്റി ചർച്ചകൾ നടത്തുന്നതെന്ന് റിട്ട

വിരമിക്കുന്നതിന് മുമ്പ് അവ സാനമായി വിധി പറഞ്ഞ കൊടുവള്ളി തെരഞ്ഞെടുപ്പ് കേസിൽപോലും വിധിയിൽ പറയാത്ത കാര്യം ചാനലുകൾ ചർച്ച ചെയ്തെന്ന് കോഴിക്കോട് ഗവ

അറിയാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ല തെന്നും എബ്രഹാം മാത്യു കൂട്ടിച്ചേർത്തു മറ്റന്നാളത്തെ ഇടുക്കി ജില്ലാതല പട്ടയമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടുക്കി ജില്ലാ കലക്ടർ കെ ജീവൻബാബു അറി യിച്ചു ആറായിരത്തോളം പട്ടയങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും

മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഗുണഭോക്താക്കൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യും കോട്ടയം അയർക്കുന്നത്ത് പതിനഞ്ചുകാരിയെ പിതാവിന്റെ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി സംഭവത്തിൽ മണർകാട് മാലം സ്വദേശി അജേഷിനെ പൊലിസ് അറസ്റ്റ് ചെയ് തു

പെരുന്തിരുത്തി മുട്ടന്നൂർ പൂതേരി ഫുആദ് സനീൻ ആണ് മരിച്ചത്